കോവിഡ് വ്യാപനം ത്ടയുന്നതിനായി ഡൽഹി നോയിഡ ന് അതിർത്തി അടച്ച് ഉത്തർപ്രദേശ് സർക്കാർ

എണ്ണത്തിൽ ഉണ്ടായ വർദ്ധനയിൽ ആശങ്കവേണ്ടെന്ന് ആരോഗ്യവകുപ്പ്

നിലനിർത്തുമെന്ന് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്യണമെന്ന് പ്രധാനമന്ത്രി

റാപ്പിഡ് ടെസ്റ്റ് കിറ്റുകൾ ഉപയോഗിച്ചുള്ള ദ്രുത്യ പ്രിശോധന നടത്തുന്നത് രണ്ട് ദിവസത്തേക്ക് നിർത്തിവയ്ക്ക്ണൂക്കുമന്ന് സംസ്ഥാനങ്ങളോട് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറ്റ്ക്കിയ ശേഷം ദ്രുത പരിശോധന നടത്തിയാൽ മതിയെന്നും ഐ സി എം ആർ

ദ്രുത പരിശോധനയുടെ ഫലത്തിന്റെ കൃത്യതയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഉണ്ടെന്നതിനാലാണ് ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിലും കൃാൻസർ വൃക്ക രോഗങ്ങൾ എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സ മുടങ്ങരുതെന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ഡോക്ടർമാരുടെ പ്രവർത്തനത്തെ പ്രശംസിച്ച ആഭ്യന്തരമന്ത്രി അവർക്ക് സുരക്ഷ ഉറപ്പു നൽകി ഗവൺമെന്റ് അവരോടൊപ്പം ഉണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ദുരന്ത നിവാരണ നിയമവും സുപ്രീം കോടതി ഉത്തരവും പാലിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പശ്ചിമ ബംഗാൾ ചീഫ് സെക്രട്ടറി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കത്തെഴുതി കേന്ദ്രസംഘവുമായി സഹകരിക്കാൻ തുടക്കത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ വിസമ്മതിച്ചിരുന്നു

പശ്ചിമബംഗാൾ മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ് ലോക്ക്ഡൌൺ നടപടികൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രം ആറ് പ്രത്യേക്കു സംഘങ്ങളെ അയച്ചത്

അതിർത്തി പ്രദേശമായ ജില്ലയിൽ വാഹനഗതാഗതം ഗണ്യമായി വർദ്ധിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് നടപടിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡ് രോഗികൾ ഇല്ലെന്നും എന്നാൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിങ്ങ് അറിയിച്ചു മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പ്രത്യേക ജാഗ്രത തുടരും ചെക്ക് പോസ്റ്റുകളിൽ പോലീസ് പരിശോധന കർശനമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഗോവയും കോവിഡ് വിമുക്ത സംസ്ഥാനമായതായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം വന്നിരുന്നു

എന്നാൽ ഈ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പൊതുവെ രോഗതീവ്രത കുറഞ്ഞു വരുന്ന പ്രവണത ആണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രകടമാകുന്നതെന്നും കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസർ ഡോ അമർഫെറ്റിൽ ആകാശവാണിയോട് പറഞ്ഞു

സമൂഹ നോമ്പുതുറ ഒഴിവാക്കും സമൂഹഭാവി ക്ട്ണക്കിലെടുത്ത് കൂടിച്ചേരലുകളും കൂട്ട പ്രാർത്ഥനകളും മാറ്റാൻ ഏകകണ്ഠമായ നിലപാടെടുത്ത മതനേതാക്കളെയും പണ്ഡിതന്മാരെയും അഭിനന്ദിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു

ജനങ്ങൾ ആരോഗ്യ പ്രവർത്തകരോടും സുരക്ഷാ ഉദ്യോഗസ്ഥരോടും സഹകരിക്കണമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ശ്രീ നഖ്വി അഭിപ്രായപ്പെട്ടു

കോവിഡ് ബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകർ മതിയായ ആരോഗ്യ സുരക്ഷാ മാർഗ്ഗങ്ങൾ ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു

പലിശ ആനുകൂല്യവും കൃത്യമായി തിരിച്ചടവ് നടത്തുന്നവർക്കുള്ള ആനുകൂല്യവും ലഭിക്കുന്നതിന് ഈ കാലയളവു വരെ സമയും നൽകും ലോക്ക് ഡൌണിനെ തുടർന്ന് കർഷകർക്ക് വായ്പൂർത്തീരിച്ചടവിനായി ബാങ്കുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത് സ്റ്റ്ഗ്ഗാഹചര്യം കണക്കിലെടുത്താണ് കാലാവധി നീട്ടീഏൽകുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ മൊറട്ടോറിയം നില്ലൂവിൽ വന്നതിനാൽ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കരുത്തെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു

ജി വിതരണക്കാരുമായി ഇന്നലെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ആശയവിനിമയം നടത്തി അടച്ചുപൂട്ടൽ കാലഘട്ടത്തിൽ എൽ

ജി സിലിണ്ടറുകൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന പ്രവർത്തനത്തെ അദ്ദേഹം അഭിനന്ദിച്ചു

ജി സിലിണ്ടറുകൾ സൌജന്യമായി ലഭ്യമാക്കുന്നത് പരമാവധി സാധ്യമാക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു

ഇത് സംബന്ധിച്ച് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി

ഇതിനായി സഹകരിച്ച് പ്രവർത്ത്യിക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചിത്രായി കൃഷിമന്ത്രിമാരുടെ വെർച്ചൽ യോഗത്തിനു ശേഷം പൂള്ളി്റക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു സൌദി അറേബ്യയുടെ അദ്ധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഭക്ഷ്യാ്ർപ്പ്പ്ന്നങ്ങളുടെ വില അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നതിനും ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്നതിനും ഇടയാക്കുന്ന എല്ലാ സാഹിക്കുര്യങ്ങൾക്കെതിരെയും സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചു ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്രമന്ത്രി നരേന്ദ്രസിങ്ങ് തോമർ യോഗത്തിൽ പങ്കെടുത്തു

കോവിഡ് ഇന്ത്യ സേവ എന്ന ട്വിറ്റർ ഹാന്റിലിൽ ചോദ്യം പോസ്റ്റ് ചെയ്താൽ പരിശീലനം ലഭിച്ച വിദഗ്ദ്ധർ ഉടനടി മറുപടി നൽകും ഈ സംവിധാനത്തിലൂടെ പൊതുജനാരോഗൃം സംബന്ധിച്ച ആധികാരിക വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്നും ഒപ്പം ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള സാഹചര്യം ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുമെന്നും ഡോ ഹർഷവർദ്ധൻ അറിയിച്ചു

ശുചിത്വപൂർണ്ണവും ആരോഗ്യകരവും കൂടുതൽ സമൃദ്ധവുമായി ഭൂമിയെ നിലനിർത്തുന്നതിന് പരിശ്രമിക്കുമെന്ന് ജനങ്ങൾ പ്രതിജ്ഞ ചെയ്യണമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

സന്തുലിതമായ ജീവിതശൈലി സ്വീകരിക്കുമെന്ന് ഭൌമദിനത്തിൽ പ്രതിജ്ഞ ചെയ്യാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറും ആഹ്വാനം ചെയ്തു

തെരച്ചിലിനിടയിൽ ഭീകരവ്ട്ട്ടീകൾ വെടിവയ്പ്പ് നടത്തി ഇതിനെ തുടർന്ന് സുരക്ഷാസേന നടത്തിയ പ്രത്യാക്രമണത്തിലാണ് നാല് ഭീകരവാദികൾ കൊല്ലപ്പെട്ടത്

പ്രകൃതി ദുരന്തമോ മറ്റ് അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പുതിയ വ്യാപാര ചർച്ചകൾക്ക് കരാറിലെ വൃവസ്ഥ ചൈനയ്ക്ക് അനുമതി നൽകുന്നുണ്ട്